ശക്തമായ നടപടികൾ ആവശ്യമാണ്ണ് ് പ്രധാനമന്ത്രി

ഇല്ലാതെ ഇന്ന് തൃശൂർപൂരം

എല്ലിൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അനായാസ ജയം

യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ പശ്ചിമ ബംഗാൾ സന്ദർശനം റദ്ദാക്കിയിട്ടുണ്ട് കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും അദ്ദേഹം സംവദിക്കും

സംസ്ഥാനങ്ങൾക്ക് നിലവിൽ ആവശ്യമുള്ളതിലും അധികം ഓക്സ്പ്രിജൻ അനുവദിച്ചിട്ടുണ്ട്

രാജ്യഉത്ത് ഓക്സിജൻ ഉത്പാദനവും വിതരണ സംവിധാനങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ആരായണമെന്ന് പ്രധാനമന്ത്രി മന്ത്രാലയങ്ങളോട് നിർദ്ദേശിച്ചു ഇന്ന് ഉച്ചകൃഴീത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ പ്രമുഖ ഓക്സിജൻ നിർമാതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും

വോയ്സ് കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ ഇന്ത്യ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും ശുദ്ധമായ ഊർജ്ജം ഊർജ്ജ കാര്യക്ഷമത വനവൽക്കരണം ജൈവ വൈവിധ്യം എന്നിവയിൽ ഇന്ത്യ ധീരമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും ശ്രീ

നമ്മുടെ ജീവിതശൈലി ഇപ്പോഴും സുസ്ഥിര പരമ്പരാഗത രീതികളിൽ വേരൂന്നിയിരിക്കുന്നതാണ് ഇതിന് കാരണം കാലാവസ്ഥ വ്യതിയാനം ചെറുക്കാൻ ജീവിതശൈലി മാറ്റത്തിന്റെ പ്രാധാന്യവും ശ്രീ മോദി ഊന്നിപ്പറഞ്ഞു ഇപ്പോൾ മനുഷ്യരാശി നേരിടുന്ന മഹാമാരി കാലാവസ്ഥാ വൃതിയാനം ഉയർത്തുന്ന ഗുരുതരമായ ഭീഷണി അപ്രത്യക്ഷമായിട്ടില്ലെന്നതിന്റെ സമയോചിതമായ ഓർമ്മപ്പെടുത്തലാ ണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

ഇത് സംബന്ധിച്ച് പ്രത്യേക മാനദണ്ഡങ്ങൾ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

കേന്ദ്ര പഞ്ചായത്തീരാജ് വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആധൃക്ഷത വഹിക്കും സ്വമിത്വ എന്ന് കേന്ദ്ര പദ്ധതിയെപ്പറ്റിയുള്ള പുസ്തകം പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും

വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

പൂരത്തിന് തുടക്കം കുറിച്ച് രാവിലെ വടക്കുംനാഥന്റെ തെക്കേഗോപുരനട തുറന്നു

ജനസാഗരം സാക്ഷിയാകേണ്ട ചടങ്ങിന് ഇത്തവണ സാക്ഷൃം വഹിക്കുന്നത് ക്ഷേത്ര ഭാരവാഹികളും പോലീസും മാധ്യമപ്രവർത്തകരുമായി കുറച്ചുപേർ മാത്രം

അതേതുടർന്ന് പാറമേക്കാവ് ഭഗവതിയെ പുറത്തേക്കെഴുന്നള്ളിക്കുന്ന ചടങ്ങിനൊപ്പ്രു

ഇക്കുറി എല്ലാം ചടങ്ങ് മാർത്മായി ഒതുങ്ങുകയാണ് എങ്കിലും ജനമനസ്സുകളിൽപൂരം നാളെ പുലർച്ചെയുള്ള പ്രധാന വെടിക്ക്ടെട്ടും കടുത്ത നിയന്ത്രണങ്ങളോ ടെയായിരിക്കും നടക്കുക

ന്യൂസ് ഡെസ്ക് ആകാശുവാണി

നിലവിൽ യാത്രാക്കാരുടെ എണ്ണത്തിൽ വൻ കുറവ് ഉണ്ടായെങ്കിലും വളരെ തിരക്കേറിയ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണിവരെ കൂടുതൽ സർവീസുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി

ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പ്രധാനന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി

ഇന്നലെ പുലർച്ചെ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് കസബ പോലീസ് അറസ്റ്റ് ചെയ്ത സരിതയെ ഉച്ച കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി കേസിന്റെ വിചാരണ പ്രവേളയിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നതിനെ ് തുടർന്നാണ് ക്യ്ശബ പൊലീസ് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത്

സെഞ്ചുറി നേടിയ മലയാളി താരം ദേവ്ദത്ത് പടിക്കലും അർധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ വിരാട് കോലിയും ചേർന്ന് ബാംഗ്ലൂരിന്റെ വിജയം എളുപ്പമാക്കി